എൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് തകർപ്പൻ ജയം വാർത്തകൾ വിശദമായി പൊതുവിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ഗവൺമെന്റ് നിയമനങ്ങളിൽ പത്തുശതമാനം സംവരണം നടപ്പാക്കാൻ എടുത്ത തീരുമാനം നിലവിലെ സംവരണ വിഭാഗങ്ങളെ ബാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പൊതുവിഭാഗത്തിൽ നിന്നാണ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തുന്നതെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ അറിയിച്ചു ബന്ധപ്പെട്ട സർവീസ് റൂളിലെ സംവരണ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി വിജ്ഞാപനം വന്നാലുടൻ സംവരണത്തിന് പ്രാബല്യമുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു

കുടുംബവരുമാനവും സാമ്പത്തികമായ പിന്നാക്കാവസ്ഥയും കണക്കിലെടുത്താണ് സംവരണത്തിന് അർഹരായവരെ തീരുമാനിക്കുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

ദ്ദേ കോഴിക്കോട് ജില്ലയിൽ സമ്പർക്കം വഴി കോവിഡ് രോഗബാധ വർദ്ധിക്കുകയാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ സമ്പർക്ക രോഗികളുടെ എണ്ണം ആയിരം കടന്ന ഏകജില്ല കോഴിക്കോടാണ്

കോവിഡ് പരിശോധനകൾ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ രോഗലക്ഷണം കാണിക്കുന്നവർ സ്വമേധയാ പരിശോധനയ്ക്ക് വിധേയമാകണമെന്നും ഇത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നും ജില്ലാ അഡീഷണൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ

ഇതിനായി ഗവൺമെന്റിന്റെ സാക്ഷ്യപത്രമോ അനുബന്ധ രേഖകളോ ഹാജരാക്കണം ദേദ ലോകത്ത് കോവിഡ് രോഗബാധിതരുടെ എണ്ണം നാലുകോടി പതിനാലര ലക്ഷം കവിഞ്ഞു

ദ്ദേ മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമലയിൽ കൂടുതൽ സൌകര്യങ്ങളൊരുക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു

കോവിഡ് സുരക്ഷാ മാർഗ്ഗരേഖ തീർത്ഥാടന സുരക്ഷയെ ബാധിക്കരുതെന്ന് കോടതി പറഞ്ഞു ഇവയുൾപ്പെടെ കോടതി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ദേവസ്വം ബോർഡിന്റെ പങ്കാളിത്തത്തോടെ പുനഃപരിശോധിക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു

പദ്ധതിയുടെ ഭാഗമായ ജനറേറ്റിംഗ് സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി എം

പദ്ധതി പൂർത്തിയാകുന്നതോടെ വൈദ്യുത ഉത്പാദനം വർദ്ധിപ്പിക്കാനും മെച്ചപ്പെട്ട സേവനം ഉറപ്പാക്കാനും സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു

വിശദാംശങ്ങളുമായി ഹബീബ് റഹ്മാൻ

സൌന്ദര്യവല്ക്കരിച്ച പൊൻമുടി ലോവർ സാനിറ്റോറിയം മലപ്പുറം കോട്ടക്കുന്ന് കോഴിക്കോട് മാനാഞ്ചിറ പാർക്ക് കാസർകോട് ബേക്കൽഫോർട്ട് തുടങ്ങിയവയാണ് ഇന്ന് നാടിന് സമർപ്പിക്കുന്ന പ്രധാന പദ്ധതികൾ നവീകരിച്ച പീച്ചി മംഗലം ഡാമുകളും വയനാട്ടിലെ റോക്ക് അഡ്വെഞ്ചർ പാർക്കും ഇന്ന് ഉദ്ഘാടനം ചെയ്യും കൊല്ലം ബീച്ച് ടൂറിസം വികസനം മലമേൽപ്പാറ അരുവിക്കുഴി ടൂറിസം പദ്ധതികൾ കണ്ണൂർ ടൂറിസം പദ്ധതി മലബാർ റിവർ ക്രൂയിസം പദ്ധതിയുടെ ഭാഗമായ ബോട്ട് ടെർമിനലുകൾ എന്നിവയും ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന വിനോദസഞ്ചാര പദ്ധതികളിൽ ഉൾപ്പെടുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി ദേദ ഇടുക്കി വാഗമണിന്റെ അഞ്ച് പ്രവേശന കവാടങ്ങളിലും രാവും പകലും പ്രവർത്തിക്കുന്ന ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചു

റവന്യൂ വകുപ്പിന്റെ അനുമതിയില്ലാതെയാണ് ചട്ടങ്ങൾ മറികടന്ന് ഗവൺമെന്റ് ഭൂമി നൽകുന്നതെന്ന് അദ്ദേഹം കത്തിൽ കുറ്റപ്പെടുത്തി

എൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് തകർപ്പൻ ജയം അബുദാബിയിൽ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ എട്ടുവിക്കറ്റിന് തകർത്താണ് ബാംഗ്ലൂർ ഈ സീസണിലെ ഏഴാം വിജയം സ്വന്തമാക്കിയത്

ഇന്ന് ദുബായിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും ദര അന്തരിച്ച മലയാള നാടക സിനിമാ പിന്നണി ഗായകനും സംഗീത സംവിധായകനും നടനുമായിരുന്ന കെ ജെ മുഹമ്മദ് ബാബുവെന്ന സീറോ ബാബുവിന്റെ ഖബറടക്കം ഇന്ന് ഉച്ചയ്ക്ക് എറണാകുളം നോർത്ത് തോട്ടത്തുംപടി ജുമാമസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഇന്നലെ ഉച്ചകഴിഞ്ഞാണ് സീറോ ബാബു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അന്തരിച്ചത്

ജെ തിയറ്റേഴ്സിന്റെ ദൈവവും മനുഷ്യരും എന്ന നാടകത്തിലെ ഓപ്പൺ സീറോ വന്നുകഴിഞ്ഞാൽ വാങ്ങും ഞാനൊരു മോട്ടോർ കാർ എന്ന ഗാനമാണ് പേരിന് മുമ്പിൽ സീറോ എന്ന് കൂട്ടിച്ചേർക്കാൻ കാരണമായത്

ദേദ ജമാ അത്ത് കൌൺസിൽ സംസ്ഥാന പ്രസിഡണ്ട് എ പൂക്കുഞ്ഞ് അന്തരിച്ചു

വൃക്ക കരൾ രോഗത്തെ തുടർന്ന് ആലപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് അന്ത്യം മുസ്ലീംലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം വഖഫ് ബോർഡ് അംഗം ആലപ്പുഴ ജില്ലാ ഗവൺമെന്റ് പ്പീഡർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്

ദേദ അഴീക്കോട് സ്കൂൾ പ്തസ് ടു വിവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുസ്ലീം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

കോഴിക്കോട്ടെ സബ് സോൺ ഓഫീസിൽ വെച്ചായിരുന്നു മൊഴി രേഖപ്പെടുത്തിയത്

ഐ മെഡിക്കൽ കോളജുകളിൽ തൊഴിലാളികളുടെ മക്കൾക്ക് പ്രവേശന സംരക്ഷണ ക്വാട്ട ഒഴിവാക്കി പുറപ്പെടുവിച്ച രണ്ട് ഉത്തരവുകളും പിൻവലിച്ചതായി ഇ

ഐ ഡയറക്ടർ ജനറൽ അനുരാധ പ്രസാദ് എൻ കെ പ്രേമചന്ദ്രൻ എം

യെ അറിയിച്ചു